വന്ദേഭാരതം ദൌതൃം പുരോഗമിക്കുന്നു

പുരോഗതിയുണ്ടാകുന്നതായി ആരോഗൃമന്ത്രാലയം അറിയിച്ചു

വിദേശ്ത്ത് കൂടുങ്ങിയ പ്രവാസികളെ വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി കേരളത്തിലെത്തിക്കുന്ന നാലാമത്തെ വിമാനമാണിത്

ജമ്മു കശ്മീരിൽ നിന്നുള്ള മെഡിക്കൽ വിദ്യാർത്ഥികളാണ് എല്ലാവരും

അടുത്ത ആഴ്ചയോടെ യൂറോപ്യൻ രാജ്യങ്ങളിൽനിന്നുള്ളവരെ തിരികെ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്

കോവിഡ് സാഹചര്യം നേതാക്കൾ വിലയിരുത്തി കോവിഡ് സൃഷ്ടിക്കുന്ന ആരോഗ്യ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനായി മേഖലാതലത്തിലും ആഗോള തലത്തിലും ഏകോപനം നടക്കേണ്ടതിന്റെ പ്രാധാന്യവും നേതാക്കൾ അംഗീകരിച്ചു

എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണപ്രദേശങ്ങളിലെയും രോഗബാധിതർ രോഗസാധ്യത യുള്ളവർ ആരോഗ്യ അടിയന്തിര സേവന ഉദ്യോഗസ്ഥരും സേവന ദാതാക്കളും ആരോഗൃ പരിശോധന സൌകരൃങ്ങൾ മൃഗസംരക്ഷ ഏജൻസികൾ എന്നിവർക്ക വേണ്ടി ഈ ധനസഹായം വിനിയോഗിക്കും

ഇക്കാര്യത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാനും ഇതിലൂടെ കോവിഡ് മുന്നണിപോരാളികൾക്ക് അനുയോജ്യമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനും ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി മുന്നോട്ട് വരണമെന്നും ശ്രീ

രോഗത്തിന്റെ മൂന്നാംവ്യാപനം ഉണ്ടാകാതിരിക്കാനാണ് ശ്രമിക്കുന്നത്

ഇനിയുള്ള നാളുകൾ കൂടുതൽ കരുതലോടും ഐക്യത്തോടും ഇടപെടൽ വേണമെന്നും അദ്ദേഹം പറഞ്ഞു

ഇതുസംബന്ധിച്ച് പൊതുഭരണവകുപ്പ് ഉത്തരവിറക്കി

ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷന്റുകളിൽ നിന്ന് നേരിട്ടും പാസ് വാങ്ങാവുന്നതാണെന്നും അദ്ദേഹ്ം അറിയിച്ചു